ഉം പുൻ ചുഴലിക്കാറ്റിൽ വ്യാപക നാശമുണ്ടായ പശ്ചിമ ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സന്ദർശിച്ചു പശ്ചിമ ബംഗാളിന് ആയിരം കോടി രൂപ ധനസഹായം

മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി

മരിച്ചതായി റിപ്പോർട്ട്

ചുഴലിക്കാറ്റിനെ തുടർന്ന് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്കായി രണ്ടുലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നും ശ്രീ

സംസ്ഥാനത്തെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്രസാർല്ലം ഉടൻ തന്നെ എത്തുമെന്നും പ്രധാനമന്ത്രി ഉണ്ണു ന്നൽകി നേരത്തെ ചുഴലിക്കാറ്റ് നാശം വിതച്ച മേഖ്ല്കളിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജ്ജി ്യുമായി ചേർന്ന് പ്രധാനമന്ത്രി വ്യോമനിരീക്ഷണം ന്ടുത്തിയിരുന്നു

ദുരിതബാധിത മേഖലകളിൽ അദ്ദേഹം വ്യോമനിരീക്ഷണം നടത്തി ഒഡിഷ ഗവർണർ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിധർമേന്ദ്ര പ്രധാൻ തുടങ്ങിയവരും ശ്രീ

ഭുവനേശ്വറിൽ നടക്കുന്ന അവലോകന യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്

ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ്സൂഥിരീകരിച്ച ദിവസമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി പ്രിജ്യൻ പറഞ്ഞു

ഇതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കി

ഓൺലൈൻ വഴിയായിരിക്കും ടിക്കറ്റ് ബുക്കിംഗ് കോവിഡ് ഇല്ലെന്ന് ഉറപ്പാക്കാൻ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലമോ ആരോഗ്യസേതു ആപ്പോ യാത്രക്കാർ ഉപയോഗപ്പെടുത്ത്ത്ണം

യാത്രക്കാർ പ്മുഖ്ാവരണം ധരിക്കുകയും സാനിറ്റൈസർ കൈയ്യിൽ ്കിരുതുകയും വേണം യാത്രാ ദൈർഘൃം അനുസരിച്ച് വിമാന റൂട്ടുകളെ ഏഴ് വിഭാഗങ്ങളായി തിരിച്ചിട്ടു്ണ്ട് വന്ദേ ഭാരത് ദൌത്യവുമായി ബന്ധപ്പെട്ട വിവിധ ്രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യാക്കാരെ ഒഴിപ്പിക്കുന്നത് തുടരുന്നതായും വ്യോമയാന മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിമാനം പുറപ്പെടുന്നതിന് രണ്ട് മണിക്കൂർ മൂമ്പ് യാത്രക്കാർ വിമാനത്താവളത്തിലെത്തണം

ബഹ്റിനിൽ നിന്ന് തിരുവനന്തപുരത്തേയ്ക്കും ദുബായിൽ നിന്ന് കൊച്ചിയിലേയ്ക്കും ഇന്ന് വിമാനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്

വിശദാംശങ്ങളുമായി ആകാശവാണ് പ്ക്ണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ

രാജ്യത്ത് പണലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടിയെന്ന് ആർ

അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനത്തിൽ അദ്ദേഹം ഓൺലൈനിലൂടെ സംവദിച്ചു

ധാരാളം സർവ്വകലാശാലകൾ ജൈവവൈവിധൃത്തിൽ സർട്ടിഫിക്കറ്റ് ഡിഗ്രി കോഴ്സുകൾ നടത്തുന്നതിൽ ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഓൺലൈനിലൂടെയും റെയിൽവേ റിസർവ്വേഷൻ കൌണ്ടർ വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകും

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അന്തരാഷ്ട്ര വിമാനസർവീസുകളെ ആശ്രയിച്ചായിരിക്കും സേവനങ്ങൾ നടക്കുകയെന്ന് കേന്ദ്രമന്ത്രി രവി ശങ്കർ പ്രസാദ് ട്വിറ്ററിൽ കുറിച്ചു